കേന്ദ്ര ആരോഗൃ മന്ത്രാലയം

ഇന്തൃക്കാരുടെ തിരിച്ചുവരവ് നാളെ ആരംഭിക്കും സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളും കൊച്ചി തുറമുഖവും പൂർണ്ണ സജ്ജം

തെലങ്കാന

കൂടുതൽ ല്യബ്ബോറട്ടറികൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഐ സി എ് ്യൂർ കോവിഡ് പരിശോധനാ സൌകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂകയാണ്

ന്യൂഡൽഹിയിൽ ചേർന്ന കർമ്മസമിതി യോഗത്തിൽ രോഗനിർണ്ണയം പരിശോധന എന്നീ കാര്യങ്ങളും ഇതിനു പുറമേ അവലോകനം ചെയ്തു വിവിധ കമ്പനികൾ നടത്തുന്ന ഗവേഷണ പ്രവർത്തനങ്ങളും യോഗം പരിശോധിച്ചു

പ്രതിരോധ മരുന്ന് ഗവേഷണത്തിനായി ശാസ്ത്രലോകവും വ്യവസായ മേഖലയും കൈകോർത്ത നടപടി പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വന്ദേ ഭാരത് മിഷൻ എന്നതാണ് ദൌത്യത്തിന് നൽകിയിട്ടുള്ള പേര് വിമാനത്തിൽ ആദ്യ ആഴ്ച എത്തുന്നവരിൽ അധികവും കേരളത്തിലാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവങ്ങളിലാണ് പ്രവാസികൾ എത്തിച്ചേരുന്നത്

ദൌത്യത്തിന്റെ ഭാഗ്ഗമായ ഒന്നാംഘട്ട ഒഴിപ്പിക്കലിനായി നാവികസേനയുടെ ജല്ലാ്ശു മഗർ എന്നീ കപ്പലുകൾ മാൽഡീവ്സിലെക്ക് പുറപ്പെട്ടു ആയിരത്തോളം പേരെ ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് ക്ണ്ക്കാക്കുന്നത് മെഡിക്കൽ പരിശോധനയ്ക്കു ശേഷം വ്ടെള്ളിയാഴ്ചയോടെ മടക്കയാത്ര ആരംഭിക്കും യാത്രക്കാരുടെ ്പെട്ടിക മാൽഡീവ്സിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം തയ്യാറാക്കി പ്പൂരിക്യാണ് കൊച്ചിയിലേക്ക് എത്തിക്കുന്ന യാത്രക്കാരുടെ മടക്കയാത്ര ്കൃത്യമായ സാമൂഹിക അകലവും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും

ഗൾഫ് രാജ്യങ്ങളിൽ നിന്നു മാത്രം മൂന്നു ലക്ഷത്തിലധികം പേർ തിരികെയെത്താൻ രജിസ്റ്റർ ചെയ്തതായാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനു പുറമേ അമേരിക്ക യുകെ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും

യാത്രക്കാരെ പരിശോധിക്കാനായി തെർമൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവരെ താമസിപ്പിക്കുന്നതിനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളും ജില്ലകളിൽ ഒരുക്കുന്നു വീടുകൾ തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾഹോട്ടലുകൾ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് താമസ സൌകര്യം ഒരുക്കുന്നത്

ജോലി നഷ്ട്ടുപ്പെട്ട് പ്രവാസികൾ വിസാ കാലാവധി കഴിഞ്ഞവർ ചികിത്സ് ആപ്പശ്യമുള്ളവർ ഗർഭിണികൾ പ്രായമായവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും

തുടർന്ന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും

യാത്രയിലുടനീളം സാമൂഹിക അകലം കൃത്യമായും പാലിക്കണം

ഈ കാലയളവിൽ ഇന്ത്യയിൽ അധികസമയം താമസിക്കുന്നതിന് പിഴ നൽകേണ്ടതില്ല

എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഇടിഞ്ഞതിനാൽ ചില്ലറ വിൽപ്പന വിലയിൽ താരതമ്യേന മാറ്റമുണ്ടാവില്ല

ഇ ഇ

ലോക്ഡൌണീനെ തുടർന്നുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന്റെ ഭി്ഗമായാണ് പാക്കേജെന്ന് കർണ്ണാടക മുഖ്യമന്ത്രി ബി

ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അയ്യായിരം രൂപയുടെ ധന്സ്ഫായം പാക്കേജിന്റെ ഭാഗമായി ലഭിക്കും ഇതിനുപുറമെ ചെറുകിട വൃവസായ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവുകളും ലഭ്യമാക്കും

മദ്യത്തിനു മേൽ കോവിഡ് സെസ് ചുമത്താൻ സംസ്ഥാനം തീരുമാനിച്ചതായും ഈ തുക പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഉപയോഗിക്കുമെന്നും ഹരിയാന ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാല അറിയിച്ചു

സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നതിനുള്ളൂ ബൂദ്ധിമുട്ട് കണക്കിലെടുത്ത് ബോർഡ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവയോടൊപ്പം ഇ മെയിലൂടെ ഇത് വിതരണം പ്രെയ്യാനും മന്ത്രാലയം അനുമതി നൽകി

ഈ ഫോമുകളിലേക്കുള്ള ലിങ്കുകൾ സഹിതം പ്രചരിക്കുന്ന വാട്ട്സാപ്പ് മെസേജുകൾ വ്യാജമാണെന്നും സർക്കാർ അറിയിച്ചു അത്തരത്തിൽ ഒരു ഫോമും കേന്ദ്രസർക്കാർ പുറത്തിറക്കിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു ഇത്തരം ലിങ്കുകളിൽ ക്സിക്ക് ചെയ്യരുതെന്നും എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നും പി ഐ ബി നിർദ്ദേശിച്ചു

ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ചാണ് ആന്റിബോഡി വികസിപ്പിച്ചത്

ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ക്രമേണ ബന്ധപ്പെട്ട ഫെഡറൽ ഏജൻസികൾക്ക് കൈമാറാനാണ് തീരുമാനം രാജ്യം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു